നിർണ്ണയ ചർച്ചകൾ സജീവമാക്കി മൂന്നണികൾ

ഇന്ന് വൈകുന്നേരം തിരുവ്ന്തപുരത്ത് എത്തും കേന്ദ്ര ഏജൻസിക്കളുടെ അന്വേഷണം ന് രാഷ്ട്രീയപ്രേരിതമ്മെന്ന് എൽ ഡി എഫ് സർക്കാരിനെതിരെ ആരോപണം ശക്തമാക്കി പ്രതിപക്ഷ നേതാവ്

എമ്മിനെ വിമർശിച്ച് വി മുരളീധരൻ

നീക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം

ബിജെപി സംസ്ഥാന അധൃക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപന സമ്മേളനം നാളെ ശംഖുമുഖത്ത് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായതിന് ശേഷം ആദ്യമായാണ് ശ്രീ

നാളെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും ഇന്ന് വൈകുന്നേരം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം നാളെ രാവിലെ റോഡുമാർഗം കന്യാകുമാരിയിലേക്ക് പോകും തിരുവനൂന്തപുരത്ത് മടങ്ങിയെത്തുന്ന ശ്രീ

ജില്ലയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്പീക്കർ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭാ സ്പീക്കർ പി

സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്

പ്രതിഷേധ മാർച്ച് മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ എന്നിവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് സംസ്ഥാനത്തെ കസ്റ്റംസ് മേഖലാ ഓഫീസുകളിലേക്ക് എൽ

എഫ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലേക്കാണ് മാർച്ച് എന്നാൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണി വിലപ്പോകില്ലെന്ന് കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു അതേസമയം ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ പ്രക്ഷ്ടോഭം തുടങ്ങി

മുരളീധരൻ വിവിധ അന്വേഷണങ്ങളുട്ടെ പ്പേരിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിന്റെ പ്പേട്ടയാടുന്നുവെന്ന ആരോപണം ബാലിശമാണെന്ന് കേന്ദ്രീ ്ലൂഹമന്ത്രി വി

തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഐ ഫോൺ വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശൃപ്പെട്ടു

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സമിതിയിൽ സിപിഎം സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയാറായി രണ്ട് ടേം നിബന്ധന കർശനമായി പാലിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അഞ്ച് മന്ത്രിമാർ സ്പീക്കർ എന്നിവരെ ഒഴിവാക്കി

തുടർച്ചയായി രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്ക് ഇക്കുറി അവസരം നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം

ഡി എഫ് പ്രകടനപത്രികയുടെ അന്തിമരൂപം തയ്യാറാക്കാനുള്ള യോഗവും പുരോഗമിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക പുറത്തിറങ്ങും

ഉത്തരവ് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യേക്ക്സ്ഥനായിരിക്കുമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇൻപ്പിധിപ്പകർപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര ത്തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടിങ് മെഷീൻ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഉപയോഗിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള വോട്ടിങ് മെഷിനുകൾ

പോളിങ്ങിൽ കൂടുതൽ കൃത്യതയും സുതാരൃതയും ഉറപ്പാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത

കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയും വൃവസായ മേഖലകളായ ഏലൂർ ആലുവ എന്നീ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു

ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രധാന മുന്നണികളും അവരുടെ സ്ഥാനാർഥികളെ പ്രഖ്യാപിക്കും വിജയസാധ്യത ഉറപ്പുവരുത്താൻ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുന്നണികളുടെ ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ യു ഡി

നിർമ്മാണ പ്രവർത്തനങ്ങളും ഭാരപരിശോധനയും പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് പാലം തുറന്നുകൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ആഘോഷ പരിപാടികളില്ലാതെയാണ് ചടങ്ങ്

സംസ്ഥാനം ചൂട് കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് ഡിഗ്രിവരെ ഉയരാനിടയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കാട്ടുതീയ്ക്ക് സാധ്യതയുള്ളതിനാൽ വനത്തിലും സമീപപ്രദേശത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

പാഡി പ്പേയ്മെന്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നെല്ല് സ്ംഭരിക്കാൻ ആർപ്പൂക്കരയിലെ നെല്ലുടമയെ ചുമതലപ്പെടുത്തിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കുട്ടനാട് കർഷക വികസനസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം സിവിൽ സപ്ലൈസ് ഓഫീസിനു മുന്നിലായിരുന്നു സമരം കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിന്മേൽ വയനാട് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എ

ഐ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പു പ്രകാരം പോലീസ് കേസെടുത്തു